തോമസ് നയിക്കുന്ന കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ലയിച്ചു

ഇന്നും നാളെയുമായി ശേഷിക്കുന്ന സ്ഥാനാർത്ഥികൾ കൂടി പത്രിക സമർപ്പിക്കുന്നതോടെ സംസ്ഥാനത്തെ പ്രചാരണ ചൂട് വീണ്ടും ഉയരും എൽഡിഎഫ് യുഡിഎഫ് എൻഡിഎ മുന്നണികളിലെ പ്രമുഖ നേതാക്കളിൽ പലരും ഇന്നലെ പത്രിക നൽകി മന്ത്രിമാരായ ടി

രാമകൃഷ്ണൻ എം

മണി കടകംപള്ളി സുരേന്ദ്രൻ എ

മൊയ്തീൻ എ

ശശീന്ദ്രൻ മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ മുസ്ലീം ലീഗ് നേതാവ് പി

കുഞ്ഞാലിക്കുട്ടി ഷിബു ബേബി ജോൺ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പത്രിക നൽകിയ പ്രമുഖരിൽ ഉൾപ്പെടുന്നു

രും ഒരാൾക്ക് ഒന്നിലധികം വോട്ടർ തിരിച്ചറിയൽ കാർഡ് നൽകിയെന്ന പരാതിയിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അഞ്ച് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് റിപ്പോർട്ട് തേടി

ആരോപണം ശരിയെന്ന് തെളിഞ്ഞാൽ നിയമപ്രകാരം നടപടിയെടുക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി രുമ കാസർകോട് ഉദുമ മണ്ഡലത്തിൽ ഒരു വനിതാ വോട്ടറുടെ പേര് വോട്ടർപട്ടികയിൽ അഞ്ചിടത്ത് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു അവർ കോൺഗ്രസ് അനുഭാവി ആണെന്ന തരത്തിൽ വന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതായും എങ്ങിനെയാണ് അവരുടെ പേര് അഞ്ച് തവണ വോട്ടർ പട്ടികയിൽ വരികയും തിരിച്ചറിയൽ കാർഡ് നൽകുകയും ചെയ്തതെന്ന അന്വേഷണമാണ് വേണ്ടതെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു

തോമസ് നയിക്കുന്ന കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ലയിച്ചു ഇന്നലെ കടുത്തുരുത്തിയിൽ നടന്ന യുഡിഎഫ് കൺവെൻഷനിൽ ലയന പ്രഖ്യാപനം നടന്നു പുതിയ പാർട്ടിയിൽ പി

ജോസഫ് ചെയർമാനും പി

തോമസ് ഡെപ്യൂട്ടി ചെയർമാനും മോൻസ് ജോസഫ് വൈസ് ചെയർമാനുമാണ് ഏകീകൃത ചിഹ്നത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു

രംഭ കേരളത്തിലെ പ്രതിപക്ഷ നേതൃ മനസുകൾ ഇവിടെ വികസനം വരാൻ പാടില്ലെന്ന് ചിന്തിക്കുന്നവരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു കിഫ്ബിക്കെതിരായ പ്രചാരണം ഇതിന്റെ ഭാഗമാണ് കൊടുവള്ളി മണ്ഡലത്തിലെ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു പിണറായി രും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മലപ്പുറം ജില്ലയിൽ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും കൊണ്ടോട്ടി ചേളാരി താനൂർ പൊന്നാനി എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കും വൈകീട്ട് ഏലംകുളത്ത് ഇ എം എസ് സാംസ്കാരിക സമുച്ചയം പിണറായി ഉദ്ഘാടനം ചെയ്യും രും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ നേതാക്കളും തോറ്റാൽ പ്രവർത്തകരും ബിജെപിയിൽ ചേരുന്ന പ്രതിസന്ധിയിലാണ് ആ പാർട്ടിയെന്ന് മന്ത്രി ഡോ

അത് മറച്ചുവെയ്ക്കാനാണ് സിപിഐഎം ബിജെപി കൂട്ടുകെട്ടെന്ന ആരോപണം ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജയിച്ചു വരുന്ന എംഎൽഎ മാരിൽ ഒരാൾ പോലും ബിജെപിയിൽ ചേരില്ലെന്ന് ഉറപ്പുകൊടുക്കാൻ ചെന്നിത്തലക്ക് കഴിയുമോ എന്നും പോസ്റ്റിൽ തോമസ് ഐസക് ചോദിച്ചു രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ലോകം ആദരിക്കുമ്പോഴും രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ അത് അംഗീകരിക്കാൻ തയാറാവുന്നില്ലെന്ന് മുതിർന്ന ബിജെപി നേതാവ് ഒ

എൻഡിഎ കോഴിക്കോട് നോർത്ത് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജഗോപാൽ

രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റിന്റേതെന്ന് അദ്ദേഹം ആരോപിച്ചു വാളയാർ കേസിലെ പ്രതികളേയും ഗവൺമെന്റ് സംരക്ഷിക്കുകയാണെന്ന് വേണുഗോപാൽ കുറ്റപ്പെടുത്തി രംഭ കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സ്റ്റാറ്റിക് സർവൈലൻസ് സംഘങ്ങൾ ഇതുവരെ മുപ്പത്തി ഒന്നര ലക്ഷത്തിൽ പരം രൂപ പിടിച്ചെടുത്തു കുന്ദമംഗലം സംഘം ഇന്നലെ മാത്രം നാലു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിടികൂടി രുര നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വയനാട് ജില്ലയുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളായ മൂലഹള്ളി ബാവലി കുട്ട എന്നിവിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി

വൈകിട്ട് ഏഴിന് അഹമദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം മൂന്നാം മത്സരത്തിൽ എട്ടു വിക്കറ്റിന് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു

ഇന്ന് ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് വിജയ പ്രതീക്ഷ പുലർത്താനാകു

കോവിഡ് സാഹചര്യത്തിൽ കാണികൾക്ക് സ്റ്റേഡിയത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ല രുപ ചെന്നൈയിൽ സമാപിച്ച പന്ത്രണ്ടാമത് സൌത്ത് സോൺ റൈഫിൾ ഷൂട്ടിങ്ങ് ചാമ്പ്യൻഷിപ്പിൽ തൃശൂരിന്റെ അദീന റോണിഷ് ചാലക്കലിന് മൂന്ന് മെഡലുകൾ ലഭിച്ചു എയർ റൈഫിൾ സബ് ജൂനിയർ വിഭാഗത്തിൽ സ്വർണവും ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ വെങ്കലവുമാണ് തൃശൂർ പോട്ടോർ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അദീന സ്വന്തമാക്കിയത്

മറ്റു ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗികളുടെ എണ്ണം

രും സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധത്തിന് നിർണായക പങ്ക് വഹിച്ച ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ഒരു വർഷം പിന്നിട്ടു മൂന്ന് ഘട്ടമായാണ് സംസ്ഥാനത്ത് ക്യാമ്പയിൻ നടപ്പാക്കിയത്

രംഭ കോട്ടയം ജില്ലയിൽ ഇന്ന് മൂന്ന് കോവിഡ് മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കും അതിരമ്പുഴ പാരിഷ് ഹാൾ ചെത്തിപ്പുഴ സർഗക്ഷേത്ര ഓഡിറ്റോറിയം ചങ്ങനാശേരി ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ രുര സംസ്ഥാനത്ത് സിബിഎസ്ഇ സ്കൂളുകളിൽ ബോർഡ് പൊതു പരീക്ഷകൾ എന്നിവയൊഴികെ പരീക്ഷകൾ ഓഫ് ലൈനിൽ നടത്താൻ പാടില്ലെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിർദേശിച്ചു

ഇക്കാര്യം വ്യക്തമാക്കി സിബിഎസ്ഇ പ്രാദേശിക ഓഫീസർ സർക്കുലർ പുറപ്പെടുവിക്കണമെന്ന് കമ്മീഷൻ ഫുൾ ബെഞ്ച് ആവശ്യപ്പെട്ടു രുര സംസ്ഥാനത്ത് പല ജില്ലകളിലും പകൽ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്തനിവാരണ അതോറിറ്റി നിർദേശിച്ചു സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് അതോറിറ്റിയുടെ മുന്നറിയിപ്പിൽ പറയുന്നു

രുര കൊടുങ്ങല്ലൂർ മീനഭരണി ആഘോഷങ്ങളുടെ ഭാഗമായി അശ്വതി കാവുതീണ്ടൽ ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ ഭരണി നാളായ ഇന്ന് ക്ഷേത്രാങ്കണത്തിൽ പട്ടാര്യ സമുദായം കൂശ്മാണ്ഡ ബലിയർപ്പിച്ച് വെന്നിക്കൊടി നാട്ടുന്നതോടെ ആഘോഷ ചടങ്ങുകൾ സമാപിക്കും കോവിഡ് പശ്ചാത്തലത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്